എ ഇ ഇന്തൃയ്ക്ക് കൈമാറിയ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ സി ബി ഐ ചോദ്യം ചെയ്യുകയാണ്

വൈകിട്ട് അവസാനിക്കും വോട്ടെടുപ്പ് വെള്ളിയാഴ്ച

വോട്ടിംഗ് പുരോഗമിക്കുന്നു

നെതർലന്റ്സിനേയും മലേഷ്യ പാകിസ്ഥാനേയും ഇന്ന് ഭൂവനേശ്വറിൽ നേരിടും

ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ക്രിസ്റ്റ്യൻ മിഷേലിനെ യു എ യിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചത് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ച മിഷേലിനെ സി ബി

അന്വേഷണ ഏജൻസിയുടെ ചോദൃം ചെയ്യലിന് ശേഷം മിഷേലിനെ ഇന്ന് തന്നെ ഡൽഹി കോടതിയിൽ ഹാജരാക്കും വിദേശകാര്യമന്ത്രിസുഷമാ സ്വദരാജ് യു എ ഇ വിദേശമന്ത്രി അബ്ദുള്ള ബിൻ സയേദുമായി അബുദാബിയിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് മിഷേലിനെ ഇന്ത്യയ്ക്ക് കൈമാറിയത്

ഡോ മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇടപാട്

കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ യു എ ഇ അധികൃതർ മിഷേലിനെ അറസ്റ്റ് ചെയ്യുക്യൂർയിരുന്നു

ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിൽ നിർണായക നാഴികക്കല്ലാണ് ഇതെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം കോടിക്കണക്കിന് ഗ്രാമീണരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിന് കാരണക്കാരായ ശാസ്ത്രജ്ഞരിൽ ഇന്ത്യ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ ഇന്ത്യക്കാരനും ഈ വിജയം പ്രചോദനമാകുമെന്നും ശ്രീ നരേന്ദ്രമോദി വിലയിരുത്തി

ഇന്തൃയിലെമ്പാടും അതിവേഗ ബ്രോഡ്ബാന്റ് സേവനം സാധ്യമാകുന്നതുടക്കം വിവര വിനിമയ രംഗത്ത് വൻ കുതിച്ചു ചാട്ടത്തിന് ഉപ്പശ്ലീക്ക് വഴിവെയ്ക്കും

ആർ ഒ ചെയർമാൻ കെ ശിവൻ പ്രതികരിച്ചു ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പുതുതലമുറ സേവനങ്ങൾ രാജ്യത്ത് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ഐ എസ് ആർ ഒ ചെയർമാൻ പറഞ്ഞു

വിദേശകാര്യ മന്ത്രി സുഷമാ സ്വരാജ് യു എ ഇ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് കരാർ സംബന്ധിച്ച ധാരണയിലെത്തിയത് ഇരു രാജ്യങ്ങളും വാണിജൃ വൃവസായ ആവശ്യങ്ങൾക്ക് സ്വന്തം കറൻസികൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന സുപ്രധാന കരാറാണ് ഇവയിലൊന്ന് ആഫ്രിക്കയിൽ വികസന പദ്ധതികൾക്ക് ഇന്ത്യയും യു എ ഇ യും തുടക്കും കുറിക്കുന്നതാണ് രണ്ടാമത്തെ കരാർ ഊർജ്ജം വാണിജ്യം തീവ്രവാദം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ഉറപ്പാക്കാൻ ശ്രീമതി സുഷമ യു എ ഇ വിദേശകാര്യ പ്ലകുപ്പുമായി ചർച്ച നടത്തി

റിസർവ്വ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആറംഗ ധന നയ സമിതിയുടെ ത്രിദിനയോഗം തിങ്കളാഴ്ച തുടങ്ങിയിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതും ഭക്ഷ്യവിലയിൽ കുറവ് രേഖപ്പെടുത്തിയതും ഉൾപ്പെടെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ വായ്പ നിരക്കുകളിൽ ആർ

റിപ്പോ നിരക്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ

ഇവയിൽ പല സ്ഥാപനങ്ങളും ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാത്തവയാണ് ഇവയിൽ പലയിടത്തും കുട്ടികൾക്ക് മതിയായ സംരക്ഷണമോ പരിചരണമോ ലഭിക്കാറില്ല എന്ന് പരാതിയുണ്ട് സ്കൂളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളിലും ശിശുസംരക്ഷണ കേന്ദ്രങ്ങളിലും ഇതേ സ്ഥിതി നിലനിൽക്കുന്നു

ഹോസ്റ്റലുകളിൽ നിശ്ചിത ഇടവേളകളിൽ പരിശോധന അടക്കം നിർദ്ദേശങ്ങൾ വനിതാ ശിശു മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ പാർട്ടി നേതാക്കൾ പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ സുമർപൂർ ദൌസ എന്നിവിടങ്ങളിലെ റാലികളെ അഭിസംബോധന ചെയ്യും

ജെ പി അധ്യക്ഷൻ അമിത് ഷാ പാർട്ടി നേതാക്കളായ രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി വസുന്ധര രാജെ സ്മൃതി ഇറാനി ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് തുടങ്ങിയവർ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസിനുവേണ്ടി അശോക് ഗെലോട്ട് സച്ചിൻ പൈലറ്റ് മുകുൽ വാസ്നിക് ഹരീഷ് റാവത്ത് രാജ് ബബ്ബർ തുടങ്ങിയവർ റാലികളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥ് എന്നിവരുൾപ്പെടെ തെലങ്കാനയിൽ പൊതു സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും

ഭരണകക്ഷിയായ ബി ജെ പി യും സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തും വെവ്വേറെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്

മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം നേരത്തെ സ്വത്ത് മൂലൃത്തിന്റെ അഞ്ച് ശതമാനമായിരുന്നു രജിസ്ട്രേഷൻ ഫീസ്

മണ്ണിന്റെ മലിനീകരണത്തിന് എതിരെ പരിഹാര നടപടികൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം മണ്ണിന്റെ സംശുദ്ധി നിലനിർത്താൻ പ്രതിജ്ഞയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ജനങ്ങളെ ആഹ്വാനം ചെയ്തു

ആദ്യ മത്സരങ്ങൾ ജയിച്ച നെതർലന്റ്സിനും ജർമ്മനിക്കും മൂന്ന് പോയിന്റുകൾ വീതമുണ്ട് പോയിന്റ് നിലയിൽ പാകിസ്ഥാൻ മൂന്നാമതും മലേഷ്യ ഏറ്റവും പിന്നിലുമാണ് ഗ്രൂപ്പ് സി ൽ മുന്നിട്ടുനിൽക്കുന്നു ഇന്ത്യ് ശനിയാഴ്ച മൂന്നാമത്തേയും അവസാനത്ത്യെയും മത്സരത്തിൽ കാനഡയെ നേരിടും

സൌദി എയർലൈൻസ് ആണ് ആദ്യ സർവ്വീസ് നടത്തിയത്

ആവശ്യമായ സുരക്ഷാ നടപടികൾക്ക് ശേഷ്മാണ് സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറൽ ഇപ്പോൾ സ്പർവ്വീസിന് അനുമതി നൽകിയിരിക്കുന്നത്

ശൈലജ എറണാകുളത്ത് ആധുനിക നിലവാരത്തിലുള്ള പോക്സോ കോടതി സ്ഥാപിക്കുന്നതിന് നടപടി പ്രകമങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ

ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രിയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞമാസം തെരേസാ മെയ് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ യഥാസമയം അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് കുറ്റപ്പെടുത്തുന്ന പ്രമേയം ഹൌസ് ഓഫ് കോമൺസിൽ പാസായി